മെയ് നാല് മുതൽ പ്രാബലൃത്തിലാകുമെന്ന് കേന്ദ്ര സർക്കാർ കൂടുതൽ ജില്ലകളിൽ ഇളവ് വരുമെന്ന് സൂചന

ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ വിവ്വിധ്യപ്സ്ഥാനങ്ങളിൽ കുടുങ്ങിയ കുടിയേറ്റ തൊഴിലാളികളുടൂട്ട് മടക്കം പുരോഗമിക്കുന്നു

കേരളത്തിൽ ഇന്ന് രണ്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മാർഗ്ഗനിർദ്ദേശം യൂ

പ്രശസ്ത ബോളിവുഡ് നടൻ ഋഷി കപൂർ ഓർമ്മയായി

രാജ്യത്ത് കൂടുതൽ ജില്ലകളിൽ ഇളവ് നൽകു ന്നതും പരിഗണനയിലുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ പുറത്തു വിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു നിലവിലെ ലോക്ഡൌൺ സ്ഥിതി കഴിഞ്ഞ ദിവസം അവലോകനം ചെയ്തിരുന്നു ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് രാജ്യ ത്തെ രോഗവ്യാപനം നിയന്ത്രിക്കാനായെന്ന് വിലയിരുപ്പെടുന്നു ഈ സാഹചര്യത്തിൽ മെയ് മൂന്ന് വരെ നിലവിലെ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്

കുടിയേറ്റ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തീർത്ഥാടകർ വിനോദ സഞ്ചാരികൾ തുടങ്ങിയവ രെയാണ് നാട്ടിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നത് ബിഹാർ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരുടെ പട്ടിക തയ്യാറാ ക്കാൻ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു

ജനങ്ങൾ ആരോഗ്യ സേതു മൊബൈൽ ആപ്പ് ഡൌൺലോഡ് ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്

ആരോഗൃപരിശോധന യ്ക്ക് ശേഷം എല്ലാവരെയും സ്വന്തം ജില്ലകളിലേക്ക് അയച്ചു മധ്യപ്രദേശിലെ ഒരു ലക്ഷത്തോളം തൊഴിലാളികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നത് അവരിൽ ചിലർ ഇതിനകം സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരുന്നു

പഞ്ചാബ് ഹിമാചൽ പ്രദേശ് രാജീസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തൊഴിലാളികളെ നാട്ടില്ടെത്തിക്കുന്നത്

മടങ്ങിയെത്തുന്നവർക്ക് കാറന്റീനിൽ കഴിയുന്നതിന് കത്വ സാർബ് ജില്ലകളിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മലപ്പുറത്തും കാസർകോടുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചതെന്ന് കോവിഡ് അവലോകനത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു

പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കോവിഡ് മുൻകരുതൽ പാലിക്കണമെന്നും ശ്രീ

സംസ്ഥാനങ്ങളില്ലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന ഗ്രന്ത്രീമാരുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും വീഡിയോ പ്രക്യോൺഫറൻസ് നടത്തവെയാണ് കേന്ദ്രമന്ത്രി ഈ നിർദ്ദേശങ്ങൾ നീൽകിയത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ചട്ടമുമ്പൂസ്കൃരിച്ച് ജലസംരക്ഷണം ഭൂഗർഭ ജലം ജലസേചനം തുടങ്ങിയ ്മേഖ്ച്കളിൽ ജലശക്തി മന്ത്രാലയത്തിന്റെ പദ്ധതികളുമായി ചേർന്നാണ് പ്രവർത്തിക്കേ ണ്ടതെന്നും ശ്രീ

ജിസി പ്പുറത്തിറക്കി ഒരു റിപ്പോർട്ട് നിലവിലെ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഒന്നിന് ക്സാസുകൾ ആരംഭിക്കാ മെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് പുതുതായി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്തംബർ ഒന്നിന് ക്ലാസ് തുടങ്ങാമെ ന്നാണ് നിർദ്ദേശം കോവിഡ് മുക്തമായ സംസ്ഥാനങ്ങളിൽ പരീക്ഷകൾ ജൂലൈയിൽ നടത്താവുന്നതാണ് എല്ലാ സർവ്വകലാശാല കളിലും കോവിഡ് സെൽ രൂപീകരിക്കണമെന്നും യു

പരീക്ഷകൾ വിദ്യാർത്ഥികൾക്കുള്ള മറ്റ് പ്രശ്നങ്ങൾ എന്നിവ ഈ സംവിധാനത്തിലൂടെ പരിഹരിക്കും

ജി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭാര്യ നീതു കപൂർ മകൻ രൺബീർ കപൂർ എന്നിവരോടൊപ്പം ഹിന്ദി ചലച്ചിത്ര മേഖലയിലെ അഭിഷേക് ബച്ചൻ സെയ്ഫ് അലി ഖാൻ കരീന കപൂർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു

വിവിധ സർക്കാർ സ്വകാര്യ ലാബുകൾക്ക് അംഗീകാരം നൽകി കോവിഡ് പരിശോധന സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടർച്ചയായി ശ്രമിച്ച് വരികയാണെന്നും ഐ സി എം